ള ൽ ൾ മേഘാലയത്തിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടി നേതാവ് കോൺറാഡ് സാങ്മ ഇന്ന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

ത്രിപുരയിലെ ബിജെപി ഐപിഎഫ്പി സഖ്യം ഇന്ന് അഗർത്ത ലയിൽ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെ ടുക്കും കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്ഗരിയെയും ജുവൽ ഒറാമി നെയും നിരീക്ഷകരായി ബിജെപി നിയോഗിച്ചിട്ടുണ്ട് നിരീക്ഷകരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മുഖ്യമന്ത്രിയെ അന്തിമ മായി പ്രഖ്യാപിക്കുന്നത് ത്രിപൂര ബിജെപി പ്രസിഡന്റ് ബിപ്സവ് ദേവ് മുഖ്യമന്ത്രിയായേ ക്കുമെന്നാണ് വിവരം പുതിയ ഗവൺമെന്റ് മറ്റന്നാൾ സ്ഥാനമേറ്റേ ക്കും നാഗാലാന്റിലും ഗവൺമെന്റ് രൂപീകരണ ശ്രമങ്ങൾ പുരോഗ മിക്കുകയാണ്

നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞടുക്കാൻ ഇരു പാർട്ടികളുടേയും യോഗം ഇന്ന് ചേർന്നേക്കും കേന്ദ്ര നിരീക്ഷക നായ ജെ

നദ്ദ ഇന്നലെ ദീമാപൂരിലെത്തിയിട്ടുണ്ട് നാഗാലാന്റിൽ പുതിയ ഗവൺമെന്റ് മറ്റന്നാൾ സ്ഥാനമേറ്റേക്കു മെന്നാണ് റിപ്പോർട്ട് ചേർത്തല കെവിഎം ആശുപത്രിയിലെ നേഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കാൻ ലേബർ കമ്മീഷണർ ഇന്ന് നഴ്സുമരുടെ സംഘടനാ നേതാക്കളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തും മിനിമം വേജസ് കമ്മറ്റിയും ഇന്ന് യോഗം ചേരുന്നുണ്ട്

ഇതേ തുടർന്ന് നഴ്സുമാർ ഇന്നാ രംഭിക്കാനിരുന്ന കൂട്ടയവധിയെടുപ്പ് സമരം മാറ്റിവെച്ചു

കണ്ണൂർ ചെറുതാ ഴത്തിനടുത്ത് വിജേഷാണ് അറസ്റ്റിലായത് ജില്ലാ പൊലീസ് മേധാവി യുടെ പ്രത്യേക സ്കാഡ് കാസർകോട്ടു നിന്നാണ് ഇയാളെ പിടികൂ ടിയത് സംസ്ഥാനത്ത് എസ്എസ്എൽസി ഹയർ സെക്കൻ്ററി പരീക്ഷ കൾക്ക് നാളെ തുടക്കമാകും

രാമകൃഷ്ണന്റെ നേതൃ ത്വത്തിൽ അവലോകനം ചെയ്തു പേരാമ്പ്ര ടൌണിലെ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്ന ബൈപ്പാസ് റോഡ് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രി നിർദേശം നൽകി ഇതിനായി വെള്ളിയാഴ്ച്ച സംയുക്ത സർവ്വെ നടത്തും ഭൂജലം വരും തലമുറകൾക്ക് കരുതി വയ്ക്കുന്നതിനായി ഭൂജല പരിപോഷണത്തിന് മുഖ്യ പ്രാധാനൃം നൽകണമെന്ന് മന്ത്രി മാത്യു ടി തോമസ് പറഞ്ഞു കേരള ഗ്രൌണ്ട് വാട്ടർ ഡിപ്പാർട്ടമെന്റ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാനസമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹരിത വിദ്യാലയം വിദ്യാഭ്യാസ റിയാലിറ്റി ഷോയിൽ പാലക്കാട് കോങ്ങാട് ഗവൺമെന്റ് യുപി സ്കൂളും എറണാകുളം ഉദയംപേരൂർ എസ്എൻഡിപി സ്കൂളും ഒന്നാം സ്ഥാനം നേടി മലപ്പുറം ടിപിഎം ഹൈസ്കൂൾ കോട്ടുകര രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം ആനാട് ഗവൺമെൻ്റ് യുപി സ്കൂളും കാസർകോട് ചന്തേരാ ഇസത്തുൽ ഇസ്ലാം എയുപി സ്കൂളും മൂന്നാം സ്ഥാനവും നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗ്രാന്റ് ഫിനാലെ ജേതാക്കളായ സ്കൂളുകൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു

വനിതകളുടെ ഹൈജംപിൽ എയ്ഞ്ചൽ

ദേവസ്യ സ്വർണം നേടിയപ്പോൾ ജിനു മരിയ മാനുവൽ വെങ്കലം നേടി ഇന്ന് മീറ്റിൽ പത്ത് ഫൈനൽ മത്സരങ്ങൾ നടക്കും

പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി ഏഴിനാണ് മത്സരം സംസ്ഥാന പോളിടെക്നിക് കോളജ് കായിക ്മേള ഇന്നും നാളെയും കോഴിക്കോട്ട് നടക്കും മെഡിക്കൽ കോള്ജിലെ ഒളിമ്പ്യൻ റഹ്മാൻ സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ

ഐ ലീഗ് ഫൂട്ബോളിൽ കോഴിക്കോട്ട് ഇന്ന് നടക്കാനിരുന്ന ഗോകൂലം കേരള എഫ്സി മോഹൻ ബഗാൻ മത്സരം നാളത്തേക്ക് മാറ്റി

ഇന്നലെ ഷില്ലോങ്ങ് ലജോങ്ങും ഈസ്റ്റ് ബംഗാളും രണ്ടു ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു

അൻവർ എംഎൽഎ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലെ ക്രമക്കേടുകൾക്കെതിരെ കോടതിയെ സമീ പിക്കാൻ കോഴിക്കോട്ടെ വിവരാവകാശ കൂട്ടായ്മ തീരുമാനിച്ചു ഇക്കാ ര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നടപടിയെടുക്കാനാവില്ലെന്നും പരാതിക്കാർക്ക് കോടതിയെ സമീപിക്കാമെന്നും മറുപടി ലഭിച്ചതിനെ തുടർന്നാണ് കൂട്ടായ്മ നിയമ നടപടിക്ക് തീരുമാനമെടുത്തത് സിറോ മലബാർ സഭയുടെ ഭൂമിയിടപാട് പോലീസ് അന്വേഷിക്ക ണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും സിവിൽ കേസായതിനാൽ പോലീസ് അന്വേഷണം വേണ്ടെന്ന ഗവൺമെന്റ് നിലപാടിനെ കോടതി ഇന്നലെ വിമർശിച്ചിരുന്നു ഭൂമിയിടപാടിൽ പ രാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കാതിരുന്നത് എന്തുകൊണ്ടെന്നും കോടതി ചോദിച്ചു

ഹർജിയിൽ ഗവൺമെന്റും സിബിഐയും ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കും യൂത്ത് കോൺഗ്രസ് നേതാവ് ശുഹൈബ് വധക്കേസിൽ രണ്ടു പേരെ കൂടി പൊലീസ് അറസ്റ്റു ചെയ്തു മുഴക്കുന്നിലെ ദീപ്ചന്ദ് തെരൂർ പാലയോട്ടെ ബൈജു എന്നിവരാണ് അറസ്റ്റിലായത്

മണ്ണാർക്കാട് യൂത്ത് ലീഗ് പ്രവർത്തകൻ സ്ഫീർ കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി നമ്പിയൻകുന്ന് കോടിയിൽ സൈഫലിയെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഇതോടെ കേസിൽ അറസ്റ്റിലാകുന്നവരുടെ എണ്ണം ആറായി അഭയകേസിൽ മൂന്ന് പ്രതികൾ നൽകിയ വിടുതൽ ഹർജിയിൽ തിരുവനന്തപുരം സിബിഐ കോടതി ഇന്ന് വിധി പറയും പ്രതികളാ യ ഫാദർ തോമസ് കോട്ടൂർ ഫാ ജോസ് പുതൃക്കയിൽ സിസ്റ്റർ സ്റ്റെഫി എന്നിവരുടെ വിടുതൽ ഹർജികളിലാണ് ഏഴ് വർഷത്തിന് ശേഷം വിധി പറയുന്നത് അതിനിടെ അഭയ കേസിൽ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്യ ണമെന്നും പ്രതിചേർത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് ക്രൈം ബ്രാഞ്ച് മുൻ എസ് പി കെ ടി മൈക്കിൾ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും മൂന്നാർ ഗുണ്ടുമല എസ്റ്റേറ്റിലെ ശിശുപരിപാലന കേന്ദ്രത്തിലെ ആയ രാജഗുരുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ മകനും ഭർത്താവും അറസ്റ്റിൽ കൊല നടക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത മകനെയും ഭർത്താവ് മണികുമാറിനെയുമാണ് പോലീസ് പിടികൂടിയത്

പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് സ്കൂളിലെ പത്താംക്ലാസ് വിദ്യാർത്ഥികളായിരുന്നു തിരുവല്ല ടൌണിൽ പൊലീസ് റെയ്ഡിൽ രണ്ടു കിലോ കഞ്ചാവും മൂന്ന് ലക്ഷം രൂപയുടെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടി ച്ചെടുത്തു

കടയുടമ ബംഗാൾ മൂർഷിദാബാദ് സ്വദേശി മുഹമ്മദ് ആലാനെ അറസ്റ്റു ചെയ്തു കൊച്ചിയിൽ കൃതി അന്താരാഷ്ട്ര പുസ്തക മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഹിത്യ വിജ്ഞാനോത്സവം മറാത്തി സാഹിത്യ കാരൻ കിരൺ നഗാർക്കർ ഉദ്ഘാടനം ചെയ്യും

വിദേശത്തേയും സ്വദേശത്തേയും ഒട്ടേറെ എഴുത്തുകാർ വിജ്ഞാനോത്സവത്തിൽ പങ്കെടുക്കും ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ലയായി കൊല്ലം മാറുന്നു

ശൈലജ നടത്തും

മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് നേരെ കണ്ണൂരിൽ കരിങ്കൊടി കാണിച്ച സംഭവത്തിൽ മൂന്ന് പേരെ പൊലീസ് അറസ്റ്റു ചെയ്തു

ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവബലി ചടങ്ങുകൾ നട ക്കും രാവിലെ ശീവേലിക്കും പന്തീരടി പൂജക്കും ശേഷമായിരിക്കും ഉത്സവബലി

തരിശു നില നെൽകൃഷിക്ക് ഹെക്ടറിന് ആദൃ വർഷം ഏഴായിരം രൂപ്പ ആനുകൂലൃം കർഷകർക്ക് ലഭിക്കുമെന്ന് ഡപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു

കാന്തല്ലൂർ മലനിരകളിൽ ഏറ്റവും കൂടുതൽ നീലക്കുറിഞ്ഞി പൂക്കുന്ന പട്ടിശ്ശേരി മലനിരകളിലും കാട്ടുതീ പടർന്നു ആയിരത്തിലധികം കുറിഞ്ഞിച്ചെടികൾ കത്തിനശിച്ചു